ഏർപ്പെടുത്തി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെട്ടുക്കും

സംസ്ഥാനത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് അറുതിവരാത്ത് സാഹചര്യത്തിലാണ് തീരുമാനം ഇതു സംബന്ധിച്ച കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചു

നിലവിലെ സാഹചര്യത്തിൽ ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് സംസ്ഥാനത്ത് ഗവൺമെന്റ് രൂപവത്കരിക്കുക പ്രയാസകരമാണെന്ന് ബോധ്യപ്പെട്ടതായി ഗവർണർ ഭഗത്സിങ് കോഷിയാരി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ് ആദ്യം ബി ജെ

യെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിച്ചുവെങ്കിലും അവർ പിൻമാറി

പിന്തുണ ട്ടെളിയിക്കാൻ ശിവസേനയ്ക്ക് സാധിക്കാതിരുന്നതിനാൽ ഗവർണർ എൻ

എന്നാൽ എൻ സി

അതേസമയം പിന്തുണ തെളിയിക്കാൻ മൂസ്സ് ദ്വിവസം വേണമെന്ന ആവശ്യം അനുവദിക്കാത്ത ഗവർണറുടെ നടപട്ടിക്കെതിരെ ശിവസേന സുപ്രീംകോടതിയെ സമീപിച്ചു

വിദേശ നിക്ഷേപകരുടെ ആദ്യ ലക്ഷ്യ സ്ഥാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അബുദാബിയിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹൈഡ്രോ കാർബൺസ് സംഘടിപ്പിച്ചു റോഡ് ഷോയുടെ ഭാഗമായി നിക്ഷേപകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

നാഗാ വിഭാഗവുമായിട് അന്തിമ ഉടമ്പടി ഒപ്പിടുന്നതിനു മുമ്പ് എല്ലാവരുമായും ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉറപ്പു നൽകിയിട്ടുണ്ട് മണിപ്പൂരിന്റെ താൽപ്പര്യത്തിന് ഹാനികരമായ ഒരു തീരുമാനവും എടുക്കില്ലെന്ന് അമിത് ഷാ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബൈരൻ സിങ് പറഞ്ഞു

ക്ട്രൻഷൻ നൽകാനും ഉടൻ സംവിധാനം ഏർപ്പെടുത്തും പ്രതിവർഷം ഒരു ലക്ഷം കോടി രൂപയുടെ ജി

ടി വരുമാനം ലക്ഷ്യമിട്ടാണ് നടപടി

ചിത്രപ്രദർശനം ചർച്ചാ സമ്മേളനങ്ങൾ ഗുരുവിനെ ആസ്പദമാക്കിയുള്ള ഹ്രസ്വചിത്ര പ്രദർശനം എന്നിവയാണ് ലോകത്തൊട്ടാകെ സംഘടിപ്പിച്ചത് വൈദ്യപരിശോധന ക്യാമ്പുകൾ വൃക്ഷത്തൈ നടീൽ ഗുരുഗ്രന്ഥ് സാഹിബിലെ കീർത്തനമായ ഗുർബാനി ആലാപനം എന്നീ പ്രത്യേക പരിപാടികളും അരങ്ങേറി ഗുരുവിന്റെ ദർശനങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിന് അദ്ദേഹത്തിന്റെ വചനങ്ങൾ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്ന സംരംഭം യുനെസ്കോ ഏറ്റെടുക്കും

കേന്ദ്ര സഹമന്ത്രി ബാബുൾ സുപ്രിയോയും ദുരന്തമേഖലകൾ സന്ദർശിച്ച് കെടുതികൾ വിലയിരുത്തും ബുൾബുൾ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ സ്ഥിതിഗതി വിലയിരുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക കർമസേന രൂപവൽക്കരിച്ചു

വിഭജന ശേഷം കുരുക്ഷേത്രത്തിൽ തങ്ങിയ അഭയാർത്ഥികളെ ഗാന്ധിജി അതുവരെ സന്ദർശിച്ചിരുന്നില്ല ഗാന്ധിജിയുടെ വചനങ്ങൾ അമൂല്യമായി സൂക്ഷിച്ച ആകാശവാണി എല്ലാ വർഷവും അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി പ്രസംഗം പ്രക്ഷേപണം ചെയ്യുന്നു

വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന പൊതുഗതാഗത സംരംഭങ്ങളിൽ മികച്ച സംരംഭം എന്ന നിലയിലാണ് പുരസ്ക്കാരം സുരക്ഷ സാങ്കേതികം സൌകര്യം കൂടാതെ യാത്രാവിവരണം അറിയിപ്പുകൾ എല്ലാം ഉൾക്കൊള്ളിച്ചാണ് പൊതുഗതാഗത സംവിധാനത്തിന് മാറ്റം കൊണ്ടുവന്നത് ബസ് യാത്രയുടെ മുഴുവൻ വിവരങ്ങളും ബസ് ഉടമസ്ഥനും പോലീസിനും തൽസമയം ലഭ്യമാക്കുന്ന സംവിധാനവും പദ്ധതിയുടെ സവിശേഷതയാണ്

ശശീന്ദ്രൻ ്പുരസ്ക്കാരം ഏറ്റുവാങ്ങും

ഡൽഹിയിലും കൊൽക്കത്തയിലും ആകാശവാണി വാർത്താ വിഭാഗത്തിലും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വിവിധ മാധ്യമ വിഭാഗങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്

ഇന്നലെ നടന്ന രണ്ടു യോഗ്യതാ മത്സരങ്ങളിലും സൌരഭ് തന്റെ എതിരാളികളെ നേരിട്ടുള്ള സെറ്റുകൾക്കു പരാജയപ്പെടുത്തി പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ മറ്റ് താരങ്ങളായ കിഡംബി ശ്രീകാന്ത് ബി സായ് പ്രണീത് സമീർ വെർമ്മ എച്ച്

പ്രണോയ് പി കശ്യപ് എന്നിവർ ഇന്ന് കളിക്കളത്തിലിറങ്ങും

വ്വനിതാ സിംഗിൾസ് റാങ്കിങിൽ പി

സിന്ധു ആറും സൈന നെഹ്റ്വാ്ൾ ഒൻപതും സ്ഥാനങ്ങൾ നിലനിർത്തി